ഭാവി ഭദ്രതയ്ക്ക് ജലസുരക്ഷ സുപ്രധാനമെന്ന് പ്രധാന മന്ത്രി നരേന്ദ്ര മോദി

കോവിഷീൽഡ് വാക്സ്ട്രിന്റെ ര്ണ്ട് ഡോസുകൾ തമ്മിലുള്ള ന് ഇടവേള നാല് മുതൽ ഏട്ടാഴ്ച വരെ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര നിർദ്ദേശം

ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്

ലോക ജല ദിനമായ ഇന്നലെ ജല സംരക്ഷണ പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ജനങ്ങളിൽ ജൽശക്തി പദ്ധതിയെക്കുറിച്ചുളള അവബോധം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു മഴവെള്ളം സംഭരിക്കാനും ജലസംരക്ഷണം സംബന്ധിച്ച് മറ്റുളളവരെ ബോധവത്ക്കരിക്കാനും ഗ്രാമീണർ മികച്ച പങ്ക് വഹിക്കുന്നതിൽ ശ്രീ

വെളളം പണത്തേക്കാൾ വിലപ്പെട്ടതാണെന്നും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിൽ നമുക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ബിജെപിയ്ക്ക് തുടർച്ചയായി പിന്തുണ നൽകുന്ന ഗോവയിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു

കൂടാതെ ഇൻഷറൻസ് കമ്പനി ഉടമകൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ നീക്കുന്നതിനും ബില്ലിലൂടെ സാധിക്കും മൂലധനത്തിലധിഷ്ഠിതമായ ഇൻഷറൻസ് മേഖലയ്ക്ക് ഭീമമായ ദീർഘകാല നിക്ഷേപം ആവശ്യമാണെന്ന് ബില്ലിനെ പരാമർശിച്ചു ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു എല്ലാ ജനങ്ങൾക്കും ഇൻഷറൻസ് ആനുകൂലൃം ലഭ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു

ദേശീയ തലസ്ഥാന മേഖലയായ ഡൽഹിയിലെ സർക്കാരിന്റെയും നിയമസഭയുടെയും പ്രവർത്തനത്തിനായി പ്രത്യേക ചട്ടക്കൂട് ത്യ്യാറാക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ളതാണ് ബിൽ

കിഷൻ റെഡ്സി ബിൽ അവതരിപ്പിക്കും അടിസ്ഥാന്റ് സൂൌകരൃ വികസനത്തിനായി നാഷണൽ ബാങ്ക് സ്ഥാപിക്കുന്നത് ലക്ഷ്യമിടുന്ന ബിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ല്യോക്സഭയിൽ അവതരിപ്പിക്കും

രോഗപ്രതിരോധത്തെക്കുറിച്ചുളള ദേശീയ സാങ്കേതിക ഉപദേശക സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രനിർദ്ദേശം രണ്ട് ഡോസുകൾക്കിടയിലുളള പുതുക്കിയ ഇടവേള കോവിഷീൽഡ് വാക്സിനു മാത്രമേ ബാധകമാവൂ എന്നും കേന്ദ്രം അറിയിച്ചു നേരത്തെ രണ്ട് ഡോസുകൾ തമ്മിലുളള ഇടവേള നാലു മുതൽ ആറ് ആഴ്ച്ച വരെയായിരുന്നു

കോളേജുകൾ സർവകലാശാലകൾ കൽപ്പിത സർവകലാശാലകൾ തുടങ്ങിയവയ്ക്ക് ഉത്തരവ് ബാധകമാണ്

സെമസ്റ്റർ പരീക്ഷകളും ഓൺലൈനായി മാത്രമേ നടത്താവൂ

ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള നാല് ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിൻ കൂടി അധികമായി ഭൂട്ടാന് ലഭിച്ചതായി പ്രധാനമന്ത്രി ലോട്ടെ ഷെറിങ് വൃക്തമാക്കി ഇതോടെ കോവിഡിനെതിരെയുള്ള വാക്സിൻ കുത്തിവയ്പ്പിന് രാജ്യം സജ്ജമായതായും അദ്ദേഹം അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

അഫ്ഗാനിസ്ഥാനിലെ സമാധാന പാലന പ്രക്രിയയെപ്പറ്റി വിശദമായി ചർച്ച ചെയ്തെന്നും ഉഭയകക്ഷി സഹകരണം വികസന പങ്കാളിത്തം തുടങ്ങിയ വിഷയങ്ങളിൽ ആശയങ്ങൾ പങ്കുവച്ചുവെന്നും ശ്രീ എസ് ജയ്ശങ്കർ ട്വിറ്ററിലൂടെ അറിയിച്ചു

ചബഹർ തുറമുഖ നിർമ്മാണത്തിന്റെ ഒന്നാം ഘട്ട വികസനത്തിൽ പങ്കാളിയാകാനുള്ള ഇന്തൃയുടെ പ്രതിബദ്ധതയുടെ ഭാഗമാണിതെന്ന് ഇറാനിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം വ്യക്തമാക്കി

ഡി എ യുടെ തെരഞ്ഞെടുപ്പു പ്രചരണത്തിനായി മുതിർന്ന ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ ഇന്ന് രാത്രി നെടുമ്പാശ്ശേരിയിലെത്തും നാളെ രാവിലെ ഹെലികോപ്റ്ററിൽ തൃപ്പൂണിത്തുറയിലേക്ക് പോകുന്ന അദ്ദേഹം സ്റ്റാച്യു ജങ്ഷനിൽ നിന്ന് പൂർണത്രയീശ ക്ഷേത്ര ജംഗ്ഷനിലേക്ക് റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകും

മലമ്പുഴ മണ്ഡലത്തിലെ കഞ്ചിക്കോട്ടേക്ക് എത്തുന്ന അമിത് ഷാ കഞ്ചിക്കോടു മുതൽ സത്രപ്പടിവരെ റോഡ് ഷോ നടത്തും

മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയില്ല് ൂരണ്ടാമത്തെ മത്സരം വെള്ളിയാഴ്ച നടക്കും

ചൈനയിലെ ഒരു വിഭാഗം ജനങ്ങൾക്കെതിരെ ഉണ്ടായ മനുഷ്യാവകാശ നിന്ദയ്ക്ക് ഉത്തരവാദികളെന്ന് ആരോപിക്കപ്പെടുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ യാത്രാവിലക്ക് ആസ്തി മരവിപ്പിക്കൽ എന്നിവയാണ് ഉപരോധത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയി രിക്കുന്നത്